മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമലാ സീതാരാമൻ ന്യൂഡൽഹി യിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലാം ഘട്ട വോട്ടെടുപ്പ് അല്പ

പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോൺഗ്രസും സഖ്യകക്ഷി കളുമാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ തീവെപ്പും അസ്വസ്ഥതയും ഉണ്ടാ ക്കുന്നതിനു പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജാർഖണ്ഡിലെ ദുംക്കയിൽ ബി ജെ പി പ്രചാരണറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാ ദേശ് എന്നിവിടങ്ങളിൽനിന്ന് വന്ന് ഇന്ത്യയിൽ അഭയാർത്ഥികളായി ജീവി ക്കാൻ നിർബന്ധിതരായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് പൌരത്വ ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കിയതെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു

മൂന്നു ബസുകൾക്ക് പ്രതിഷേധക്കാർ തീ വെച്ചു ഡൽഹി പൊലീസിന്റെ നിർദ്ദേശമനുസരിച്ച് മെട്രോ റെയിൽ കോർപറേഷൻ ജാമിയ മിലിയ ഇസ്ലാമിയ സുഖ്ദേവ് വിഹാർ ഓഖ്ല വിഹാർ വസന്ത് വിഹാർ മുനീർക ആർ കെ പുരം മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു സ്ഥിതി നിയ ന്ത്രണ വിധേയമാണെന്ന് ഡൽഹി പൊലീസ് അറിയിച്ചു കല്ലേറിൽ ആറു പൊലീസുകാർക്ക് പരിക്കേറ്റെന്നും പ്രതിഷേധക്കാർക്കുനേരെ വെടിവെപ്പുണ്ടാ യിട്ടില്ലെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ ചിൻമോയ് ബിസോൾ പറഞ്ഞു അതി നിടെ അലിഗഡ് മുസ്തിം സർവകലാശാല അടുത്ത മാസം അഞ്ചുവരെ അട ച്ചിട്ടു

പ്രതിഷേ ധത്തിനിടയിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ഇവരെ വിട്ടയയ്ക്കണമെന്ന് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ പൊലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഒരുതരത്തിലും അക്രമം അനുവദിക്കില്ലെന്നും പ്രതിഷേധം സമാ ധാനപരമായിരിക്കണമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറ ഞ്ഞു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസും ആംആദ്മി പാർട്ടിയുമാണ് പ്രതിഷേധത്തിന് പിന്നിലെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി ജാമിയ സർവകലാശാലയിലെ പൊലീസ് നടപടിക്ക് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റാണ് ഉത്തരവാദിയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി രാജ്യത്ത് സമാധാനം പാലിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്നും പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്ററിൽ കോൺഗ്രസ് ആരോപിച്ചു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ന് ഭരണ പ്രതിപക്ഷ കക്ഷികൾ സംയുക്ത സത്യഗ്രഹം നടത്തും

മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും മന്ത്രിമാരും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളും സത്യഗ്രഹത്തിൽ പങ്കെടുക്കും തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ യു ഡി എഫ് ഉന്നതാധികാരസമിതി യോഗവും എൽ ഡി എഫ് നേതൃയോഗവും ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്

കേന്ദ്രം പാസ്സാക്കുന്ന നിയമങ്ങളെല്ലാം അപ്പടി അനുസരിക്കണമെന്ന് ഗവർണർ പറയുന്നത് കേരളത്തിൽ വിലപ്പോവില്ലെന്നും അദ്ദേഹം കോഴി ക്കോട്ട് പറഞ്ഞു

ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമലാസീതാരാമൻ ന്യൂഡൽഹിയിൽ ഇന്ന് ബന്ധപ്പെട്ട വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ വ്യാവ സായിക കർഷക സംഘടനാ പ്രതിനിധികളുമായും സാമ്പത്തിക വിദഗ്ദ്ധരു മായും അവർ ചർച്ച ചെയ്യും സ്റ്റാർട്ടപ്പ് ഡിജിറ്റൽ മേഖ്ലകളിൽ പ്രവർത്തി ക്കുന്നവരെയും ധനമന്ത്രി കാണും സാമ്പത്തിക മേഖലയിലെയും മൂലധന വിപണിയിലെയും പ്രതിനിധികളുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു ണ്ട് അടുത്ത ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ അവ രുടെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ

രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു

യുദ്ധത്തിൽ വീരമൃത്യുവരിച്ച സൈനികർക്ക് രാഷ്ട്രം ഇന്ന് ആദ രാഞ്ജലി അർപ്പിക്കും ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലാം ഘട്ട വോട്ടെ ടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും

ഏഴു മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് അഞ്ച് നക്സൽ ബാധിത മണ്ഡലങ്ങളിൽ വൈകിട്ട് മൂന്നിനും ബാക്കി പത്ത് മണ്ഡലങ്ങളിൽ അഞ്ചിനും അവസാനിക്കും

കൊച്ചി പുതുവൈപ്പിനിൽ എൽ പി ജി ടെർമിനൽ പണി പുനരാ രംഭിക്കുന്നതിനായി പൊലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ക്രമസമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി മുമ്പ് നാട്ടുകാരുടെ സമരം മൂലം നിർമ്മാണം നിർത്തിവെച്ചിരുന്നു നിർമ്മാണ സാമഗ്രികൾ പൊലീസ് സഹായത്തോടെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്

വെസ്റ്റിൻഡീസിനെതിരായ ആദ്യ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തോൽവി ചെന്നൈയിൽ എട്ടുവിക്കറ്റിനാണ് വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപി ച്ചത് ഇതോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒരു മത്സരം ജയിച്ച വെസ്റ്റിൻഡീസ് മുന്നിലെത്തി

ഐ എസ് എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ് സിയ്ക്ക് ജയം ബംഗളൂരുവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു എഫ് സി യെ രണ്ടിനെതിരെ മുന്നു ഗോളുകൾക്കാണ് മുംബൈ തോല്പിച്ചത്

ഐ ലീഗ് ഫുട്ബാളിൽ സീസണിലെ എവേ മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് മോഹൻ ബഗാനെ നേരിടും ബംഗാളിലെ കല്യാണി മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം അഞ്ച് മണിക്കാണ് മത്സരം

ഫൈനലിൽ നിലവിൽ ചാമ്പ്യന്മാരായ മധ്യപ്രദേശ് കേർളത്തെ ഒന്നിനെ തിരെ നാലു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി

ആർദ്രം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന സംസ്ഥാന ആരോഗ്യ ഫുട്ബാൾ മേളയിൽ ജില്ലാ ടീമുകളുടെ മത്സരത്തിൽ കണ്ണൂർ ജില്ല ചാമ്പ്യൻമാരായി കോഴിക്കോട് ജില്ലയാണ് റണ്ണറപ്പ് വനിതകൾക്കായി നടത്തിയ ഷൂട്ട് ഔട്ട് മത്സരത്തിൽ തൃശൂർ ജില്ല വിജയികളായി മലപ്പുറം ജില്ലക്കാണ് രണ്ടാം സ്ഥാനം

കോഴിക്കോട് ജില്ലാ കേരളോത്സവത്തിൽ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓവറോൾ കിരീടം നേടി ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും കോഴിക്കോട് കോർപറേഷൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി

ഭാരവാ ഹികളുടെ പ്രായപരിധി തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആലപ്പുഴയിൽ അറി യിച്ചു സി ഐ ടി യു സംസ്ഥാന സമ്മേളനം നാളെ ആലപ്പുഴയിൽ ആരംഭി ക്കും പ്രതിനിധി സമ്മേളനം സി ഐ ടി യു ജനറൽ സെക്രട്ടറി തപൻസെൻ ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച സമാപിക്കും

ലഭിച്ചിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറ ഞ്ഞു വോട്ട് ബാങ്കായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിന് അനുകൂല്യങ്ങൾ ലഭിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു

ആലപ്പുഴയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും മികച്ച പ്രവർത്തനത്തി നുള്ള പുരസ്കാരം ലഭിച്ചു ഡൽഹിയിൽ മറ്റന്നാൾ നടക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജിത പുരസ്കാരം ഏറ്റുവാങ്ങും

നീർച്ചാലുകളുടെ വീണ്ടെടുപ്പിനായി ഹരിതകേരള മിഷന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന് കൊല്ലം ജില്ലയിലും തുടക്കമായി നെടുമ്പന പഴങ്ങാലം തോടിന്റെ ശുചീകരണം നിർവഹിച്ച് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു

എല്ലാ ഞായറാഴ്ചകളിലും സന്നദ്ധ പ്രവർത്തകർ പെരിയാർ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റി റീസൈക്ലിംഗ് കേന്ദ്രത്തിൽ എത്തിക്കുന്നതാണ് പദ്ധതി

കോഴിക്കോട് ജില്ലാ ക്ഷീരകർഷക സംഗമം നാദാപുരം കൈവേലിയിൽ തുടങ്ങി

ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് മിൽമ കേരള ഫീഡ്സ് ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്ഷീര കർഷക സംഗമം നടത്തുന്നത്

മണ്ണിടിച്ചിലിൽപ്പെട്ട് സി ആർ പി എഫ് ഡി ഐ ജിയും ഡ്രൈവറും മരിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ വടക്കൻ കശ്മീർ ഡി ഐ ജി ഷലീന്ദർ കുമാർ സിങാണ് മരിച്ചത്

കാസർകോട് കുഞ്ചാത്തൂരിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു സുനിൽ ജഗദീഷ് എന്നിവരാണ് മരിച്ചത്

ഇന്നലെ രാത്രി ഗുണ്ടാ സംഘങ്ങൾ തമ്മിലെ സംഘർഷത്തെ തുടർന്നായിരുന്നു സംഭവം

നടവയൽ നെല്ലിയമ്പം മുതുക്കാട്ടുപറമ്പിൽ അനീഷ് ജേക്കബ്ബ് ആണ് മരിച്ചത്

ഈ ട്രെയിനുകൾക്ക് എറണാകുളം ടൌൺ കോട്ടയം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകും

തെങ്ങിന് മുകളിൽവെച്ച് പരുക്കേൽക്കുകയും തലകറക്കം അനുഭവപ്പെടുകയും ചെയ്ത മണികണ്ഠൻ എന്നയാളെയാണ് വെള്ളിമാട് കുന്നിൽ നിന്നെത്തിയ ഫയർഫോഴ് സ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്

തിരുവനന്തപുരത്ത് പൊലീസ് ആസ്ഥാനത്ത് രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായിരിക്കും